മരിച്ചത് കർണ്ണാടക സ്വദേശി

രാജു ഇന്ന് കോഴിക്കോട്ട്

പനിമൂലം കലബുറിഗിയിലും പിന്നീട് ഹൈദരബാദിലും ഇയാൾ ചികിത്സയിലായിരുന്നു

അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ജനങ്ങൾ യാത്ര ഒഴിവാക്കണമെന്നും വൈറസ് വ്യാപനം തടയുന്നതിന് ജനങ്ങൾ ഒത്തുകൂടുന്നത് ഇല്ലാതാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു കേന്ദ്രമന്ത്രിമാരുടെ വിദേശ യാത്രകൾ ഒഴിവാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി

ദുബായിൽ നിന്ന് വന്നയാൾ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളജിലും ഖത്തറിൽ നിന്ന് വന്നയാൾ തൃശൂർ ജനറൽ ആശുപത്രിയിലും ചികിത്സയിലാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇറ്റലിയിൽ നിന്ന് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരുവനന്തപുരത്തെത്തിയ ആൾക്ക് പരിശോധനയിൽ രോഗം കണ്ടെത്തിയെന്നും സ്ഥിരീകരണത്തിനായി സാമ്പിൾ ആലപ്പുഴ ലാബിൽ അയച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദേദ ഇടുക്കി ജില്ലയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഏഴ് പേരിൽ ഒരാൾ ഇറ്റലിയിൽ നിന്നും ആറു പേർ മലേഷ്യയിൽ നിന്നും വന്നരാണ്

ദേദ എറണാകുളം ജില്ലയിൽ എറണാകുളം മെഡിക്കൽ കോളജിനു പുറമെ ജനറൽ ആശുപത്രിയിലും ഐസൊലേഷൻ വാർഡുകൾ ആരംഭിച്ചു

രദേശ ഇറ്റലിയിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആയിരം കവിഞ്ഞു

ഇവരെ സൈനിക നിരീക്ഷണത്തിൽ പാർപ്പിക്കും ഇതിനായി ഏഴ് നഗരങ്ങളിൽ സൌകര്യമൊരുക്കിയതായി സൈനിക വക്താവ് കേണൽ അമൻ ആനന്ദ് ന്യൂഡൽഹിയിൽ അറിയിച്ചു

സ്പെയിൻ ഫ്രാൻസ് ശ്രീലങ്ക ഉൾപ്പെടെ രാജ്യങ്ങളിലേക്ക് സർവ്വീസുകൾ കുറക്കാനും എയർ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്

രാജു ഇന്ന് കോഴിക്കോട് ജില്ലയിൽ എത്തും രാവിലെ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും അതിനിടെ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച വേങ്ങേരി വെസ്റ്റ് കൊടിയത്തൂർ പ്രദേശങ്ങളിൽ രോഗബാധിത പ്രദേശങ്ങളിലെ വളർത്തു പക്ഷികളെ കൊന്ന് സംസ്കരിക്കുന്ന നടപടി പൂർത്തിയായി

ദേശ പരപ്പനങ്ങാടി പാലത്തിങ്ങലിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാൻ മലപ്പുറം ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു പ്രദേശത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലെ കോഴികളടക്കം പക്ഷികളെ കൊന്നൊടുക്കും പത്ത് കിലോമീറ്റർ പരിധിയിലെ കോഴിക്കടകളും മുട്ടവിൽപ്പന കേന്ദ്രങ്ങളും വളർത്തുപക്ഷി വിൽപ്പന ശാലകളും അടപ്പിക്കും പെരുവള്ളൂരിൽ കാക്കകൾ കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി മൂലമല്ലെന്ന് പരിശോധനാ ഫലത്തിലൂടെ വ്യക്തമായെന്ന് കലക്ടർ അറിയിച്ചു

രുദ സിപി ഐ എം നേതാക്കൾ ഉൾപ്പെട്ട പ്രളയദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പു കേസിൽ നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം വേണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പു സംബന്ധിച്ച് ഓരോദിവസവും പുതിയ വവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ പേർ ഇതുമായി ബന്ധപ്പിട്ടിട്ടുണ്ടെന്ന് വേണം കരുതാനെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

കായിക ഇവന്റുകൾ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണികൾ ഉൾപ്പെടെ ഒത്തുചേരാതിരിക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും കേന്ദ്രകായിക യുവജനകാര്യ വകുപ്പിന്റെ മാർഗനിർദേശത്തെ തുടർന്നാണ് നടപടി ദേദ ബർമിങാമിൽ ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പി വി സിന്ധു ക്വാർട്ടറിൽ കടന്നു ദക്ഷിണ കൊറിയയുടെ ജി ഹ്യൂൻ സങ്ങിനെയാണ് സിന്ധു തോൽപ്പിച്ചത്

ഗ്രീസിലെ ഒളിമ്പിയയിൽ കൊറോണ പശ്ചാത്തലത്തിൽ അടച്ചിട്ട വേദിയിൽ കാണികളില്ലാതെയാണ് ദീപം തെളിയിച്ചത്

ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ശേഷിക്കുന്ന മത്സരങ്ങളും അടച്ചിട്ട സ്റ്റേഡിയത്തിലാകും

രുദ വിമാനത്താവളങ്ങളിലെ പരിശോധനയിൽ കൊറോണ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയവർ പൊതുഗതാഗത സംവിധാനം ഉപയാഗിക്കരുതെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ സാംബശിവറാവു പറഞ്ഞു കൊറോണബാധിത പ്രദേശങ്ങളിൽനിന്ന് കേരളത്തിലേക്കെത്തുന്നവർക്ക് ആവശ്യമായ പ്രാഥമിക പരിശോധന സംവിധാനങ്ങൾ എയർപോർട്ടുകളിൽ കാര്യക്ഷമമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അറിയിച്ചു ദദ കൊറോണ വൈറസ് ഭീതി നിലനിൽക്കുന്നതിനാൽ കണ്ണൂർ ജില്ലയിലെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ബയോമെട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന ആധാർ ജീവൻപ്രമാൺ ബാങ്കിംഗ് കിയോസ്ക് എന്നീ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തി വെക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി

ഉപയോഗിച്ച മാസ്ക്കുകൾ അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നത് അപകടകരമാണെന്നും അവർ പറഞ്ഞു